കോൺഗ്രസ് നേതൃയോഗം രാവിലെ ഇന്ദിരാഭവനിൽ ചേരും

ജോസഫിന് നൽകി

ൾ ൽ ൾ വടക്കുംനാഥനെ സാക്ഷിയാക്കി ശക്തൻ തമ്പുരാന്റെ നാട്ടിൽ പൂര ങ്ങളുടെ പൂരം പെയ്തിറങ്ങി

താള മേള വാദ്യ വർണ വിസ്മയത്തിൽ ഇഴചേരാൻ പതിനായിരങ്ങ ളാണ് വടക്കുംനാഥ സന്നിധിയിലെത്തിയത് ഇന്നലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരുടെ മേള പ്പെരു മക്ക് ശേഷം വൈകീട്ടോടെ നിറങ്ങളിൽ നിറഞ്ഞ കൂടമാറ്റം പൂരപ്പറ മ്പിന് അപൂർവ്വ സൌന്ദരൃകാഴ്ച്ചയൊരുക്കി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവമ്പാടിയും ശേഷം പാറമേക്കാവും ആകാശ വിസ്മ യമൊരുക്കുന്ന വെടിക്കെട്ടിന് തിരികൊളുത്തി ഇന്ന് ഉച്ചയോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ശ്രീമൂല സ്ഥാനത്തെത്തി വടക്കുംനാഥനെ വണങ്ങി അടുത്ത പൂരത്തിന് ഇനിയും കാണാമെന്ന ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും കോൺഗ്രസ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാവിലെ ഇന്ദിരാഭവനിൽ സ്ഥാനാർത്ഥികൾ കൂടി പങ്കെടുക്കുന്ന നേതൃ യോഗമാണ് ആദ്യം കെപിസിസി ഭാരവാഹികൾ ഡിസിസി പ്രസി ഡന്റുമാർ പാർലമെന്റ് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ യോഗ ത്തിൽ സംബന്ധിക്കും ഉച്ചകഴിഞ്ഞാണ് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി യോഗം ചേരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ സാധൃത യോഗം വിലയിരുത്തും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും എഴുപതിനായിരത്തോളം വോട്ടുകൾ നീക്കം ചെയ്തതായി യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആൻണി കുറ്റപ്പെടുത്തി വോട്ടു കൾ അനധികൃതമായി നീക്കം ചെയ്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണെന്നും ആന്റോ ആന്റണി പത്ത നംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പൊലീസുകാരുടെ പോസ്റ്റൽ വോട്ടുകളിൽ തിരുമറിയുണ്ടായെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും

കേരളാ കോൺഗ്രസ് എം ചെയർമാന്റെ താൽക്കാലിക ചുമതല വർക്കിങ്ങ് ചെയർമാൻ കൂടിയായ പി

ജോസഫിന് നൽകി സ്ഥിരം ചെയർമാന്റെ കാര്യത്തിൽ ഈ ആഴ്ച്ച തന്നെ ചർച്ച നടത്താനും ധാരണയായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ യുഡിഎഫ് യോഗ ത്തിന് എത്തിയപ്പോൾ നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ഇക്കാ ര്യങ്ങൾ തീരുമാനിച്ചത് കോഴിക്കോട് നീലേശ്വരം ഗവൺമെന്റ് ഹയർസെക്കന്ററി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപികൻ പ്രീക്ഷയെഴു തിയ സംഭവത്തിൽ മുക്കം പൊലീസ് ജാമൃമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തു ഹയർ സെക്കന്ററി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ പരാതിയിലാണ് ആൾമാറാട്ടം വ്യാജരേഖ ചമക്കൽ എന്നി വയടക്കം നാല് വകുപ്പുകൾ ചേർത്ത് പ്രിൻസിപ്പൽ ഉൾപ്പടെ അധ്യാ പകർക്കെതിരെ കേസെടുത്തത് പ്രിൻസിപ്പലും ഡെപ്യൂട്ടി ചീഫും അഡീഷണൽ ഡെപ്യൂട്ടിയും ഉൾപ്പെടെ അധ്യാപകർ സസ്പെൻഷനിലാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാന ത്തേയും ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ നാല് ദിവസം ശേഷിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽ ഗാന്ധി ബിജെപി അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു വരികയാണ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യ ക്ഷനും പഞ്ചാബിലും ബിജെപി അധ്യക്ഷൻ ബംഗാളിലും ഇന്നലെ പ്രചാരണം നടത്തി പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമി ക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തി വിദ്യാഭ്യാസ രംഗം ഹൈട്ടെക്കാക്കുന്നതെന്നും മന്ത്രി എം

മണി അറിയിച്ചു ഇടുക്കി രാജകുമാരി എൻഎസ്എസ് കോളജിൽ റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി ന ലോകത്തെവിടെയും തൊഴിൽ നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്ത മാക്കുന്ന തരത്തിലാണ് നയം നടപ്പാക്കുന്നതെന്നും എം

മണി വ്യക്തമാക്കി മത്സ്യ സമ്പത്ത് നിലനിർത്താൻ അനധികൃത മീൻപിടിത്ത രീതി കൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ജെ

കൊല്ലം അഷ്ടമുടി കായലിലെ മത്സ്യവും ജൈവ വൈവിധൃവും ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ സംരക്ഷണ പരിപാ ലന പദ്ധതിക്ക് രൂപരേഖ തയാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു കൊല്ലം തേവള്ളി ഫിഷറീസ് അവബോധ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരു ടേയും കഴിഞ്ഞ വർഷത്തെ രണ്ട് ഗഡ്ു ക്ഷാമ ബത്ത കുടിശിക നാളെ മുതൽ വിതരണം ചെയ്യും പുതുക്കിയ ഡിഎ ഉൾപ്പെടുത്തി ഈ മാസം ശമ്പളവും പെൻഷനും നൽകിയെങ്കിലും കുടിശിക നൽകി യിരുന്നില്ല ഇടവമാസ പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് വൈകീട്ട് അഞ്ചിന് നട തുറക്കും

അന്തരിച്ച മാപ്പിളപ്പാട്ട് ഗായകൻ എരഞ്ഞോളി മൂസയുടെ കുടും ബത്തിന് രണ്ടു ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി എ

മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി തലശ്ശേരിയിൽ എരഞ്ഞോളി മൂസയുടെ വീട് സന്ദർശിച്ച ശേഷം പറഞ്ഞു തൃശൂർ പെരിഞ്ഞാനത്ത് ഇന്നലെ വൈകീട്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൂടുംബം സഞ്ചരിച്ച കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ നാല് പേർ മരിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ആലുവ കിഴ ക്കമ്പലം പള്ളിക്കര ചിത്തനാട്ടിൽ രാമകൃഷ്ണൻ മകൾ നിഷ നിഷ യുടെ മകൾ ദേവന്ദ സഹോദരിയുടെ മകൾ നിവേദിത എന്നിവ രാണ് മരിച്ചത്

ആലുവ അങ്കമാലി തൃശൂർ വടക്കാഞ്ചേരി സെക്ഷനുകൾക്കിട യിൽ റെയിൽപാത നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ട്രെയി നുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എറണാകുളം ഗുരുവാ യൂർ ഗുരുവായൂർ എറണാകുളം ട്രെയിനുകൾ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് പൂർണമായി റദ്ദാക്കി

പാലക്കാട് നഗരത്തിൽ ആറു കിലോ കഞ്ചാവുമായി രണ്ടു പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു

എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് തമിഴ്നാട് സ്വദേശികളായ ഇവർ പിടിയിലായത് കഞ്ചാവും മയക്കുമരുന്നുകളുമായി കാറിൽ സഞ്ചിരിക്കുകയാ യിരുന്ന മൂന്നംഗ സംഘത്തെ മാനന്തവാടി പൊലീസ് പിടികൂടി മല പ്പുറം എടവണ്ണ സ്വദേശി ഷബീബ് നിലമ്പൂർ സ്വദേശികളായ സുഹൈ ബ് സഫ്വാൻ എന്നിവരാണ് കഴിഞ്ഞ രാത്രി മാനന്തവാടിയിൽ പൊലീ സിന്റെ വാഹനപരിശോധനയിൽ കുടുങ്ങിയത് ഇവരിൽ നിന്ന് കഞ്ചാ വിന് പുറമെ എൽഎസ്ഡി സ്റ്റാമ്പുകൾ നിരോധിത വേദന സംഹാരി കൾ ലഹരി ഗുളികകൾ സ്മോക് പൈപ്പ് എന്നിവ പിടിച്ചെടുത്തു

വാഹനഗതാഗതത്തിനും വ്യാപാരികൾക്കുമുണ്ടാ കാവുന്ന പ്രശ്നങ്ങൾ നേരിടാൻ ഇന്നലെ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു വാഹനങ്ങൾ വഴിതിരിച്ചു വിടുമ്പോഴത്തെ വ്യാപാര മാന്ദ്യം പരമാവധി കുറയ്ക്കാനും മഴവെള്ളം കടകളിലേക്ക് കയറാതിരിക്കാൻ ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു നിലമ്പൂരിൽ മലമ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധപ്രവർത്തനം ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു

നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ

കവിയുടെ പേരിൽ ഏർപ്പെടുത്തിയ സമസ്ത കേരള നോവൽ പുരസ്കാരത്തിന് കെ

മോഹൻകുമാറിന്റെ ഉഷ്ണരാശി എന്ന കൃതിയും പി നിളാ കഥാ പുരസ്കാരത്തിന് അർഷാദ് ബത്തേരിയുടെ മീനുക ളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കൃതിയും അർഹമാ യി താമരത്തോണി കവിതാ പുരസ്കാരത്തിന് ബിജു കാഞ്ഞങ്ങാടും തേജസിനി ജീവചരിത്ര പുരസ്കാരത്തിന് അജിത് വെണ്ണിയൂരും അർഹരായി താമരശേരി ചൂരത്തിൽ ഇന്ന് മുതൽ മൾട്ടി ആക്സിൽ ട്രക്കു കൾക്ക് നിരോധനം ഏർപ്പെടുത്തി റോഡിൽ അറ്റകുറ്റപണികൾ നട ക്കുന്നതിനാൽ ഇന്നു മുതൽ രണ്ടാഴ്ച്ചത്തേക്കാണ് നിരോധനം കോഴി ക്കോട് മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന മൾട്ടി ആക്സിൽ ട്രക്കുകൾ നാടുകാണി കുറ്റ്യാടി വഴി പോകേണ്ടതാണെന്ന് കോഴിക്കോട്ട് ചേർന്ന യോഗം നിർദേശിച്ചു ഫെയ്സ്ബുക്കിൽ നിരന്തരം മത സാമുദായിക വർഗീയത നിറഞ്ഞ പരമാർശങ്ങൾ പോസ്റ്റ് ചെയ്ത കേസിൽ മഞ്ചേരി ആന ക്കയം കളത്തിങ്ങൾപടി സ്വദേശി അസ്കറിനെ പൊലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ പോസ്റ്റുകളിലെ തീവ്രവർഗീയത പരിശോധിച്ച ശേഷമായിരുന്നു അറസ്റ്റ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇയാളെ റിമാന്റ് ചെയ്തു

പാലക്കാട് മലമ്പുഴ ആറങ്ങോട്ടുകുളമ്പിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളിൽ ഒന്നിന് മദപ്പാട് ഉണ്ടെന്ന നിഗമനത്തിൽ പ്രദേശത്ത് വനം വകുപ്പ് പട്രോളിംഗ് ഊർജ്ജിതമാക്കി ആന ഇറ ങ്ങിയേക്കാമെന്നു കരുതുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഡൽഹി ദേശീയ യോഗ ഒളിമ്പ്യാഡിൽ കേരളത്തിന് വേണ്ടി നീലേ ശ്വരത്തെ മൃദൂല മത്സരിക്കും തുടർച്ചയായി രണ്ടാം തവണയാണ് മൃദുല കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്

നിരവധി കാപ്പിച്ചെടികളും മരങ്ങളും വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ചു